സംസ്ഥാനത്തെ പ്രളയക്കെടുതി വിലയിരുത്താൻ ലോകബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സംഘ് ക്കുഇന്ന് കേരളത്തിലെത്തും

ജലന്ധർ ബിഷപ്പ് പ്ര്യാക്കോ മുളയ്ക്കലിനെതിരായ അന്വേഷണം ശ്രീയായ ദിശയിലെന്ന് മന്ത്രി ഇ

ആഘോഷങ്ങളില്ലാതെ സംസ്ഥാന സ്കൂൾ കലോൽസവം നടത്താൻ തീരുമാനം

എസ് ആർ

സി സർവ്വീസുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കില്ലെന്ന് മന്ത്രി എ

ചരിത്രമെഴുതി കുക്കിന് മടക്കം

മുപ്പത് അംഗങ്ങൾ എട്ട് സംഘമായി തിരിഞ്ഞ് വിവിധ ജില്ലകളിൽ സന്ദർശനം നടത്തും

പ്രളയക്കെടുതികളിൽ പ്രാഥമിക് വിലയിരുത്തൽ പ്രകാരം ഇരുപതിനായിരം ക്ട്രോട്ടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്ട്ട്

നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ശേഖരിച്ചു നൽകാൻ ദുരന്തനിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി ധനസമാഹരണ പരിപാടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് തുക കണ്ടെത്തുന്നതിനായി നടത്തുന്ന ധനസമാഹരണ പരിപാടിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി

ബാലന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒറ്റപ്പാലം താലൂക്കിൽ ആദ്യ ധനസമാഹരണം നടന്നു

ധനസമാഹരണത്തിന്റെ ഭാഗമായി മന്ത്രിമാരായ ഇ പി ജയരാജനും എ

ധനസമാഹരണത്തിൽ ഓരോ മണ്ഡലവുമായി ബന്ധപ്പെട്ട എം പി മന്ത്രി എം

എ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും

പി ജയരാജൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ അന്വേഷണം ശരിയായ ദിശയിലെന്ന് മന്ത്രി ഇ പി ജയരാജൻ

കൂടുതൽ തെളിവുകൾ ശേഖരിക്കണമെന്നുള്ളതിനാലാണ് അന്വേഷണം വൈകുന്നതെന്നും ശ്രീ ജയരാജൻ പറഞ്ഞു അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് കന്യാസ്ത്രീകൾക്കു പോലും പരാതിയില്ലെന്നും മന്ത്രി അറിയിച്ചു

ആർോപണ് വിധേയനായ ബിഷപ്പിനെ അറസ്റ്റു ചെയ്യുന്നതു പ്രിശ്രീ സമരം തുടരുമെന്ന് ജോയിന്റ് ക്രിസ്റ്റ്യൻ കൌൺസിൽ ഭാ്രവാഹികൾ അറിയിച്ചു ടടടടടടടട മേള പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സംസ്ഥാന കലാ കായിക ശാസ്ത്ര മേളകൾ ഒഴിവാക്കാനുള്ള തീരുമാനം റദ്ദാക്കി മേളകൾ ആർഭാടമില്ലാതെ നടത്തുമെന്ന് മന്ത്രി

രവീന്ദ്രനാഥ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് ഗവൺമെന്റ് എല്ലാവിധ ആഘോഷങ്ങളും നേരത്തേ ഒഴിവാക്കിയിരുന്നു

എസ് ആർ ടി

ശശീന്ദ്രൻ

ഇ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനവും താക്കോൽ ദാനവും നിർവ്വഹിച്ചു

വിനോബാ ഭാവേയുടെ ജീവിതദർശനം ഓരോ ഭാരതീയനും ഇന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യനായിഡു അനുസ്മരിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ വിനോബാ ഭാവേ രാജ്യത്തിന്റെ തന്നെ ആചാര്യനായാണ് അറിയപ്പെട്ടിരുന്നത്

കേരളത്തിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിലും ഭൂദാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്

രാജ്യത്തിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു ഈ മനുഷ്യസ്നേഹിയെ രാജ്യം സാമുദായിക നേതൃത്വത്തിനുള്ള ആദ്യ മാഗ്സസെ പുരസ്കാരം നൽകി ആദരിച്ചു

രണ്ടാം ഇന്നിംഗ്സിൽ വൻ തകർച്ചയെ നേരിട്ട ഇന്ത്യ സ്കോർ ബോർഡിൽ രണ്ടു റൺസ് മാത്രമുള്ളപ്പോൾ വിരാട് കോഹ്ലി അടക്കം മൂന്നു വിക്കറ്റ് നഷ്ടമാക്കി

ഇന്ത്യയ്ക്കെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റോടെയാണ് കുക്ക് രാജ്യാന്ത്രി ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുന്നത്

ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇടം കയ്യൻ താരം ഏറ്റവും കൂടുതൽ സെഞ്ചറി കൂട്ടുകെട്ടിൽ പങ്കാളിയാകുന്ന നാലാമത്തെ താരം തുടങ്ങി ബഹുമതികൾ അനവധിയാണ് കുക്കിന്റെ പേരിൽ ചരിത്രം അടയാളപ്പെടുത്തുന്നത്

ഇതിൽ രണ്ടാം ഇന്നിങ്ങ്സിൽ സെഞ്ചറി നേടി കുക്ക് പുറത്താകാതെ നിന്നു ഇന്ത്യയ്ക്കെതിരെ ഇന്ത്യൻ മണ്ണിൽ കളിച്ചാണ് കുക്ക് സെഞ്ചറി തികച്ചത് തന്റെ അവസാന മൽസരം സ്വന്തം നാട്ടിൽ ഇന്ത്യയ്ക്കു നേരെയും

ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരവും കുക്കാണ് ഓപ്പണറെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടുന്ന രണ്ടാമത്തെ താരമെന്ന ബഹുമതിയും കുക്കിന് തന്നെ ഓവലിൽ രണ്ടാം ഇന്നിങ്ങ്സിൽ പതിനഞ്ചാം സെഞ്ചറിയാണ് കുക്ക് സ്വന്തമാക്കിയത് അതോടെ ഇന്ത്യൻ യുവതാരം ഹനുമ വിഹാരിയുടെ പന്തിൽ ചരിത്ര സെഞ്ചറി പൂർത്തിയാക്കാൻ കുക്കിനായി രാജ്യാന്തര ക്രിക്കറ്റിനോട് വിട പറയുമ്പോഴും ചരിത്രമെഴുതിയാണ് കുക്ക് മടങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനോടനുബന്ധിച്ച് പമ്പയിലെ താൽക്കാലിക വൈദുതി വിതരണം ഇന്ന് പൂർണ്ണ സജ്ജമാക്കുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു എന്നാൽ പണികൾ പൂർത്തിയാക്കാൻ ഒരു മാസമെങ്കിലും വേണ്ടിവരും

പതിനഞ്ച് ദിവസത്തേക്ക് നിയന്ത്രണങ്ങളോടെ വിടുന്ന ജലം ഇടതു കര കനാൽ വഴി കൊടുവായൂർ വരെയും വലതുകര കനാൽ വഴി പത്തിരിപ്പാലവരെയും ലഭിക്കും